എസ് നിർബന്ധമാക്കും സ്പീഡ് ഗവർണർ ഘടിപ്പിക്കാത്ത ബസുകൾക്കെതിരെ കർശന നടപടി സ്വീക്രിക്കുമെന്ന് ഗതാഗതമന്ത്രി

എൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രാജസ്ഥാൻ റോയൽസുമായി ഏറ്റുമുട്ടും

എസ് നിർബന്ധമാക്കുമെന്ന് ഗതാഗതമന്ത്രി എ

ശശീന്ദ്രൻ തിരുവനന്തപുരത്ത് അന്തർ സംസ്ഥാന ടൂറിസ്റ്റ് ബസുകളുടെ ചട്ടലംഘനം പരിശോധിക്കാനും പരിഹാര നടപടികൾ സ്വീകരിക്കാനും വിളിച്ചുചേർത്ത ഉന്നതതല യോഗത്തിലാണ് തീരുമാനം എടുത്തത് ഇത്തരം ബസുകളുടെ ലൈസൻസ് വൃവസ്ഥകൾ കർശനമാക്കും സ്പീഡ് ഗവർണർ നിർബന്ധമാക്കുമെന്നും യോഗത്തിൽ തീരുമൂാനമെടുത്തു അമിത ചാർജ് ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രാതികൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഫെയർസ്റ്റേജ് നിർണയിക്ക്ൂന്നതിനുള്ള ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷനോട് ആവശ്യപ്പെടാൻ തീരുമാനിച്ചു

ജി മനോജ് എബ്രഹാം ട്രാഫിക് ഐ ജി അശോക് യാദവ് തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു

സ്വകാര്യ ബസിലെ ജീവനക്കാർ യാത്രക്കാരെ മർദ്ദിച്ച സംഭവത്തിന് പിന്നാലെയാണ് മോട്ടോർ വാഹനവകുപ്പ് ടൂറിസ്റ്റ് ബസൂകൾക്കെതിരായ നടപടികൾ ശക്തമാക്കിയത് വിവിധ ടൂർ ഓപ്പറേറ്റർമാരുടെ ബസുകളുടെ നികുതി കുടിശ്ശിക അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് നോട്ടീസ് അയച്ചു തുടങ്ങി

പണമടച്ചില്ലെങ്കിൽ റവന്യൂ റിക്കവറി ഉൾപ്പെടെയുള്ള നടപടികൾ ആരംഭിക്കും മോട്ടോർ വാഹന വകുപ്പ് തൃശൂരിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ നിരവധി വാഹനങ്ങൾക്ക് ക്രമക്കേട് ഉള്ളതായി കണ്ടെത്തി

ജില്ലയിലെ വിവിധ ചെക് പോസ്റ്റുകളിൽ പരിശോധന തുടർന്ന് വരുകയാണ്

കൊച്ചി ഇടപ്പള്ളിയിൽ ഇന്ന് പുലർച്ചെ നാല് മുതലായിരുന്നു പരിശോധന നിരവധി ബസുകൾക്ക് റൂട്ട് പെർമിറ്റും ബുക്കിംഗ് ഓഫീസുകൾക്ക് ലൈസൻസും ഇല്ലെന്ന് കണ്ടെത്തി അനധികൃതമായി ചരക്ക് കടത്തിയ ബസുകൾക്കും മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിൽ പിഴ ഈടാക്കി

കടലാക്രമണം ഇൻട്രോ രൂക്ഷമായ കടലാക്രമണത്തിൽ തിരുവനന്തപുരത്ത് നിരവധി കുടുംബങ്ങൾ ദുരിതത്തിലായി

വലിയതുറയിൽ കടൽക്ഷോഭംമൂലം അപകടാവസ്ഥയിലായിരുന്ന ഭൌമ പഠന കേന്ദ്രത്തിന്റെ കെട്ടിടം പൂർണ്ണമായി തകർന്നു ശംഖുമുഖം മുതൽ പൂന്തുറവരെ തീരം പൂർണ്ണമായും കടലെടുത്തു ശക്തമായകാറ്റിലും മഴയിലും റെയിൽവേട്രാക്കിലേക്ക് മരങ്ങൾ വീണ് കൊട്ടാരക്കരയ്ക്കും ആവണീശ്വരത്തിനും ഇടയിൽ ട്രെയിൻ ഗതാഗതം തടസപ്പെട്ടു

ശക്തമായ കടൽക്ഷോഭത്തെ തുടർന്ന് പൂവാറിൽ ഉല്ലാസബോട്ടുയാത്ര നിർത്തിവച്ചു കോവളം ബീച്ചുകളിലേക്ക് സഞ്ചാരികളെ ഇറക്കിയില്ല

ഇടിമിന്നൽ ഇപ്പോഴെത്തെ വേനൽമഴയിൽ ഉച്ചയ്ക്ക് രണ്ട് മുതൽ വൈകിട്ട് എട്ടുവരെ ശക്തമായ ഇടിമിന്നൽ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകി

ഇടിമിന്നൽ തുടങ്ങുമ്പോൾ തന്നെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറുകയും ജാഗ്രത പാലിക്കുകയും വേണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു

യു പ്രസിഡന്റ് നിതീഷ് കുമാർ ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ ശിരോമണി അകാലിദൾ നേതാവ് പ്രകാശ് സിങ് ബാദൽ ലോക് ജനശക്തി പാർട്ടി നേതാവ് രാം വിലാസ് പാസ്വാൻ തുടങ്ങിയവർ പത്രികാ സമർപ്പണത്തിന് പ്രധാനമന്ത്രിക്കൊപ്പമെത്തും ഇന്ന് പ്രധാനമന്ത്രി വാരണാസിയിൽ റോഡ്ഷോയും സംഘടിപ്പിക്കുമെന്ന് ബി ജെ പി കേന്ദ്രങ്ങൾ അറിയിച്ചു

സ്ഥലത്ത് കേന്ദ്ര സംസ്ഥാന സേനകളുടെ ത്രിതല സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് കാട്ടാന ശല്യം ഉള്ള പ്രദേശമായതിനാൽ വനം വകുപ്പിന്റെ പ്രത്യേക സംഘവും പരിശോധന നടത്തുന്നുണ്ട്

ശ്രീധരൻപിള്ള കേരള രാഷ്ട്രീയത്തിൽ ഗുണപരമായ മാറ്റമുണ്ടാക്കുന്ന തിരഞ്ഞെടുപ്പാണ് കഴിഞ്ഞതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ

ശ്രീധരൻ പിള്ള കണ്ണൂരിൽ പറഞ്ഞു

ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ

മാരാരുടെ സ്മരണ ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ശബരിമല വിഷയത്തെക്കുറിച്ച് പ്രചാരണത്തിന്റെ അദ്ദേഹം അവസാനനാളുകളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സംസാരിക്കേണ്ടി വന്നുവെന്നും ശ്രീധരൻ പിള്ള പറഞ്ഞു

സർവ്വകലാശാലയിൽ ഇൻസ്ട്രുമെന്റേഷൻ വിഭാഗൃത്തിൽ പ്രൊഫസറും സിൻഡിക്കേറ്റ് അംഗവുമാണ് നിലവിൽ അദ്ദേഹം

നാലു ട്രെയിനുകൾ ഭാഗികമായി റദ്ദാക്കി

കൂടുതൽ വിവരങ്ങളുമായി കവിത സുനു

ഈ വർഷത്തെ ദിനാചരണ സന്ദേശം മലേറിയ നിവാരണം എന്നിൽ നിന്ന് ആരംഭിക്കും എന്നതാണ് പൊതുജനങ്ങളിൽ രോഗത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിച്ച് രോഗനിയന്ത്രണം സാധ്യമാക്കുക എന്നതാണ് മുഖ്യമായും ലക്ഷ്യമിടുന്നത്

ഇടവിട്ടുള്ള ദിവസങ്ങളിൽ ശക്തമായ വിറയലും പനിയും കുളിരും ശരീരം വിയർക്കലും രോഗലക്ഷണങ്ങളാണ് കൊതുക് വളരാനും പെരുകാനുമുള്ള ഒഴിവാക്കുക സാന്യത കൊതുകുകടി ഏൽക്കാതിരിക്കാൻ കൊതുകുവല ഉപയോഗിക്കുക ഡ്രൈഡേ ആചരിക്കുക വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങൾ കിണറുകൾ എന്നിവിടങ്ങളിൽ കൂത്താടി നിവാരണത്തിന് മൽസ്യങ്ങളെ നിക്ഷേപിക്കുക തുടങ്ങിയവ ഭാഗമായി നടത്താം ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലകളിൽ ബോധവത്കരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ഡസ്ക് ആകാശവാണി ഐ

എൽ ക്രിക്കറ്റിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രാജസ്ഥാൻ റോയൽസുമായി ഏറ്റുമുട്ടും

ആദ്യം ബാറ്റ് ചെയ്ത ബാംഗ്ലൂർ എ ബി

വിവിധ ജില്ലകളിൽ നിന്നുള്ള പാമ്പ് പിടുത്തിക്കാർ പങ്കെടുക്കും കളക്ട്രേറ്റ് ഉപരോധം വയനാട് തൊവരിമലയിലെ വനഭൂമി കൈയേറ്റം ഒഴിപ്പിച്ച നടപടിയിൽ പ്രതിഷേധിച്ച് ഭൂസമരസമിതി ഇന്നലെ വൈകിട്ട് ആരംഭിച്ച കളക്ടറേറ്റ് ഉപരോധം തുടരുന്നു ഹാരിസൺ എസ്റ്റേറ്റിനു സമീപത്തെ മിച്ചഭൂമിയിൽ അവകാശം സ്ഥാപിച്ച് നടത്തിവന്ന ഭൂസമരം റവന്യൂ അധികൃതരും പോലീസും ചേർന്ന് ഒഴിപ്പിച്ചിരുന്നു ഇതിനെതിരെ അഖിലേന്ത്യാ ക്രാന്തി കിസാൻസഭ ഭൂസമര സമിതി എന്നിവർ ചേർന്നാണ് ഉപരോധം നടത്തുന്നത്